ബി ഐ

ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

കുംഭമേളയോടനുബന്ധിച്ചുള്ള രണ്ടാമത്തെ പ്രധാന പുണ്യ സ്നാനം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഇന്ന് നടക്കും

നിയമ വിദഗ്ധരായും വലിയ സ്ഥാപനങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിച്ചും ഭാരതീയർ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യുവ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് ശ്രീമതി സുഷമസ്വരാജ് പറഞ്ഞു

കച്ചവടക്കാരായും തൊഴിലാളികളായും സ്ഠ്രംഭകരായും വിവിധ മേഖലകളിലെ വിദഗ്ധരായും ഇന്ത്യിൽ നിന്നും പോയവരാണ് ഇവർ നിങ്ങളുടെ വേരുകൾ തിരിച്ചറിയുന്നതിനു മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിജയഗാഥയിൽ പങ്കാളികളാകുന്നതിനുമുള്ളൂ വേദിയാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ പ്രവാസികളുടെ പങ്കാളിത്തം വേണമെന്ന് ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാഥോഡ് പറഞ്ഞു പ്രവാസികളാണ് ഇന്ത്യയുടെ അംബാസിഡർമാരെന്നും രാജ്യത്തിന്റെ സംസ്കാരം ഭാഷ എന്നിവ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു

നവ ഭാരത നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ വിഷയം മൌറീഷ്യസ് പ്രധാനമന്ത്രിയുൾപ്പെടെ ഇന്ത്യൻ വംശജരായ നിരവധി ലോക നേതാക്കൾ വിഷയത്തിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും

മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജഗ്നോഥ് മുഖ്യാതിഥിയാകും സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമർപ്പിക്കും

നാഗേശ്വര റാവുവിനെ നിയമിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിൻമാറി പുതിയ സിബിഐ മേധാവിയെ ് തെരഞ്ഞെടുക്കാനുള്ള ഉന്നതാധികാര സമിതിയിൽ അംഗമായതിനാലാണ് പിൻമാറ്റമെന്നും ചീഫ് ജസ്റ്റിസ്റ് വൃക്തമാക്കി പ്രധാനമന്ത്രി ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി നേതാവ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം ന്രിമനിർദ്ദേശം ചെയ്യുന്നയാൾ എന്നിവരാണ് ഈ സമിതിയിൽ ഉൾപ്പെടുന്നത് റാവുവിനെ ഇടക്കാല മേധാവി യായി നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടന നൽകിയ പൊതു താൽപ്പര്യ ഹർജി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവ രടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്

സമത്വ സമൂഹം എന്ന ബി

അംബേദ്കറിന്റെ സ്വപ്ന സാക്ഷാത്ക്കാരമാണ് ഇതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ബി ജെ

യുടെ പട്ടികജാതി സെല്ലിന്റെ ദേശീയ കൺവെൻഷന്റെ അവസാന ദിവസമായ ഇന്നലെ ഒരു പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

അംബേദ്കറുടെ പേരിൽ വോട്ട് നേടാൻ മാത്രമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഒന്നും ചെയ്യുന്നില്ലെന്നും ശ്രീ

കീഴിൽ രാജ്യം അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറിയെന്നും ഇത് ലോകമെമ്പാടുമുള്ള അസാമ്പത്തിക വിദഗ്ദ്ധർ അംഗീകരിച്ചതാണെന്നും ശ്രീ രാജ്നാഥ് സീങ് പറഞ്ഞു

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സംസ്ഥാനങ്ങൾക്ക് ശോഭനവും സമൃദ്ധി നിറഞ്ഞതുമായ ഭാവി ആശംസിക്കുന്നതായി ശ്രീ

ഒരു വർഷത്തിൽ കുറഞ്ഞ കാലയളവിൽ ത്രിപുര സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചുവെന്ന് ത്രിപുരയിലെ ജനങ്ങളെ ആശംസിച്ചുകൊണ്ട് ശ്രീ

സംസ്ഥാനം സ്വന്തം ശേഷി തിരിച്ചറിയുന്നുണ്ടെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ റെക്കോഡ് വേഗത്തിൽ പൂർത്തീകരിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മണിപ്പൂർ എന്ന സംസ്ഥാനം പ്രകൃതി ഭംഗിയാലും കഠിനാധാനികളായ ജനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാണെന്നും തനിക്ക് അവിടെ നിന്നും ലഭിച്ച സ്നേഹം മറക്കാനാവില്ലെന്നും ആശംസകളറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ മണിപ്പൂരിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേഘാലയിയിലെ ജനങ്ങൾ രാജ്യത്തിന് ശ്രദ്ധേയമായ സംഭാവന നൽകീയിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ തുടർച്ചയായുള്ള പുരോഗതിക്കുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നതായും ആശംസകളറിയിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

ഭാവിയിൽ സൈബർ ഇടങ്ങളിലാണ് യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നതെന്നും അതിനാൽ നിർമ്മിത ബുദ്ധി വിവരശേഖരണം എന്നിവ സേനയുടെ ഭാഗമാകേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ

പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന വിഷയത്തെ അടിസ്ഥാന മാക്കി ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

വരൾച്ചുകൊണ്ടു പൊറുതിമുട്ടിയ പ്രദേശത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് കർഷകർ ഇങ്ങനെയൊരു മഞ്ഞുവീഴ്ചയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ലഡാഖിൽ ഒറ്റപ്പെട്ട മഞ്ഞുവീഴ്ചയ്ക്കു സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് സഞ്ചാരികൾക്ക് ജില്ലാ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടവും മഞ്ഞു വീഴ്ച നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്

പൌഷ മാസ ത്തിലെ പൂർണിമയോടനുബന്ധിച്ചാണ് ചടങ്ങ് ഒരു റിപ്പോർട്ട് സമാധാന പൂർണമായ സ്നാന അന്തരീക്ഷം ഒരുക്കുന്നതിനായി ശക്തമായ സുരക്ഷാക്രമീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്

ഇന്നലെ മുതൽ തന്നെ കല്പവാസികളും ഭക്തരും മേളയ്ക്കായി എത്തി തുടങ്ങിയിട്ടുണ്ട്

അഭിപ്രായ രൂപീകരണത്തിനായി സംസ്ഥാനത്തെ വിവിധ ആദിവാസി വിഭാഗങ്ങളുമായും പ്രതിനിധികളുമായും മന്ത്രിതല സംഘം വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് സംഘത്തിന്റെ അധ്യക്ഷനും ധനകാര്യ മന്ത്രിയുമായ ഹിമാന്ത ബിശ്വ ശർമ്മ യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

മോറൻ മട്ടോക്ക് തായ് അഹോം കൊച്ച് രാജ്ബോംഗ്ഷി സൂറ്റിയ തേയിലത്തോട്ട മേഖലയിലെ ആദിവാസി വിഭാഗങ്ങൾ തുടങ്ങിയവർ ഏറെ വർഷങ്ങളായി പട്ടികവർഗ പദവി ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനത്ത് പ്രക്ഷോഭം നടത്തി വരികയാണ്

സിനായ് ഉപദ്വീപിന്റെ വടക്കുഭാഗത്തു നടത്തിയ സൈനിക നീക്കങ്ങൾക്കിടെ നടന്ന ഏറ്റുമുട്ടിലിലാണ് സംഭവമെന്ന് സൈന്യം അറിയിച്ചു എൽ ആരിഷ് പ്രദേശത്തിനും റഫാ ഷെയ്ഖ് സുവെയിദ് പട്ടണങ്ങൾക്കും മധ്യേ പാതയോരത്ത് ബോംബ് സ്ഥാപിക്കാൻ ഭീകരർക്ക് പദ്ധതിയുണ്ടായിരുന്നതായും സൈന്യം പറഞ്ഞു

ഇന്നലെ നടന്ന നിർണ്ണായക മൽസരത്തിൽ നെതർലന്റ്സ് താരം അറാങ്സ റസ് നെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അംകിത പരാജയപ്പെടുത്തിയത്